ചന്ദ്രയാൻ രണ്ടിന്റെ മൂന്നാംഘട്ട ഭ്രമണപഥ മാറ്റം വിജയകരമായി പൂർത്തിയായി

കശ്മീർ ഇന്തൃയുടെ ആഭ്യന്തരകാര്യമാണെന്നും പാകിസ്ഥാനോ മറ്റ് വിദേശരാജ്യങ്ങളോ ഈ വിഷയത്തിൽ ഇടപ്പെടേണ്ടതില്ലെന്നും രാഹുൽഗാന്ധി

പോഷൺ അഭിയാന്റെ ഭാഗമായി സംസ്ഥാനം നടപ്പാക്കുന്ന സമ്പുഷ്ട കേരളം പദ്ധതി നാളെ മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യും കേന്ദ്രമന്ത്രി സ്മൃതി ഇറാനി പങ്കെടുക്കും

സപ്ലൈകോയുടെ നേതൃത്വത്തിലുള്ള ഓണ വിപണികൾക്ക് നാളെ തുടക്കം

ഇന്തൃയുടെയും ദക്ഷിണാഫ്രിക്കയുടെയും എ ടീമുകൾ തമ്മിലുള്ള അഞ്ച് ഏകദിന ക്രിക്കറ്റ് പരമ്പരയിൽ ആദ്യത്തേത് നാളെ കാര്യവട്ടം ഗ്രീൻ ഫീൽഡ് സ്റ്റേഡിയത്തിൽ നടക്കും

സെപ്റ്റംബർ രണ്ടിന് ലാൻഡറും ഓർബിറ്ററും വേർപെടും സെപ്റ്റംബർ ഏഴിന് പുലർച്ചെയാവും ചന്ദ്രയാൻ രണ്ടിന്റെ സോഫ്റ്റ് ലാൻഡിങ്

പാകിസ്ഥാൻ എന്നല്ലി ഒരു ്വിദേശരാജ്യവും കശ്മീർ വിഷയത്തിൽ ഇടപെടേണ്ടതില്ലെന്നും രാഹുൽഗാന്ധി പറഞ്ഞു കേന്ദ്രഗവൺമെന്റിനോട് പലിപ്പീഷയങ്ങളിലും വിയോജിപ്പ് ഉള്ളപ്പോൾ തന്നെ ഇക്കാര്യം വ്യക്തമാക്കാൻ ആഗ്രഹിക്കുന്നതായും അദ്ദേഹം പറഞ്ഞു ജമ്മുകാശ്മീരിലെ സംഘർഷങ്ങൾക്ക് പാകിസ്ഥാനാണ് പിന്തുണ നൽകുന്നതെന്നും രാഹുൽ ആരോപിച്ചു തന്റെ ഔദ്യോഗിക ടിറ്റർ പേജിലൂടെയാണ് രാഹുൽഗാന്ധി ഇക്കാരൃം വൃക്തമാക്കിയത്

ഹർജികളിൽ കേന്ദ്ര ഗവൺമെന്റിന് സുപ്രീംകോടതി നോട്ടീസ് അയച്ചു ഏഴു ദിവസത്തിനകം മറുപടി നൽകണമെന്നാണ് സുപ്രീംകോടതി ആവശ്യപ്പെട്ടിരിക്കുന്നത് ഒക്ടോബർ ആദ്യവാരത്തിൽ അഞ്ചംഗ ഭരണഘടനാ ബഞ്ച് ഇതുമായി ബന്ധപ്പെട്ട എല്ലാ ഹർജികളും കേൾക്കും

ഐ എം ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിക്ക് ജമ്മു കാശ്മീരിൽ എത്തി സി പി ഐ എം നേതാവും മുൻ എം

എ യുമായ മുഹമ്മദ് യൂസഫ് തരിഗാമിയെ സന്ദർശിക്കാനും സുപ്രീംകോടതി അനുമതി നൽകി സമ്പുഷ്ടകേരളം ഇൻഡ്രോ പോഷൺ അഭിയാന്റെ ഭാഗമായിസംസ്ഥാന ഗവൺമെന്റ് നടപ്പാക്കുന്ന സമ്പുഷ്ട കേരളം പദ്ധതി നാളെ മുഖ്യമന്ത്രി പ്പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും സ്ത്രീകളിലെയുംക്ടുട്ടികളിലെയും പോഷകകുറവ് പരിഹരിക്കാൻ ലക്ഷ്യമിട്ടുള്ളതാണ് പ്രദ്ധതി

വോയിസ് നാളെ വൈകുന്നേരം തിരുപ്പന്തപുരത്ത് നടക്കുന്ന ചടങ്ങിൽ ആരോഗ്യ വനിതശിശുവികസന മന്ത്രി കെ

ശൈലജ അധ്യക്ഷതവഹിക്കും കേന്ദ്ര വനിതശിശുവികസന വകുപ്പ് മന്ത്രി സ്മൃതി ഇറാനി മുഖ്യാതിഥാകും തദ്ദേശസ്വയംഭരണമന്ത്രി എ

മൊയ്തീൻ വനം മൃഗസംരക്ഷണ മന്ത്രി കെ

കഴിഞ്ഞ വർഷംകാസർഗോഡ് മലപ്പുറം കണ്ണൂർ വയനാട്എന്നീ നാലുജില്ലകളിൽ പ്രവർത്തനം ആരംഭിച്ച സമ്പുഷ്മ കേരളം പദ്ധതിയാണ് ഇപ്പോൾസംസ്ഥാന വ്യാപകമാക്കുന്നത് വിവിധ വകുപ്പുകളുടെഏകോപനത്തിനായികേരളംതയാറാക്കിയ കൺവർജൻസ് ആക്ഷൻ പ്ലാൻ അനുസരിച്ച് സമ്പുഷ്ട കേരളം പദ്ധതി ഫലപ്രദമായി നടപ്പിലാക്കിയതിന് കഴിഞ്ഞവർഷംദേശീയഅംഗീകാരംലഭിച്ചിരുന്നു പദ്ധതി പ്രാബലൃത്തിലാകുന്നതിലൂടെആധുനികസാങ്കേതികവിദ്യ പ്രയോജനപ്പെടുത്തിഗുണഭോക്താക്കളുടെവിവരങ്ങളും പ്രശ്നങ്ങളുംതത്സമയം നിരീക്ഷിക്കുകയും അതിലൂടെ ആവശ്യാനുസരണം സേവനം ലഭ്യമാക്കാനും സാധിക്കും ന്യൂസ്ഡെസ്ക്ആകാശവാണി

സംസ്ഥാനതലഉദ്ഘാടനം നാളെവൈകിട്ട്തിരുവനന്തപുരത്ത്മുഖ്യമന്ത്രി പ്പിണറായി വിജയൻ നിർവഹിക്കും ഭക്ഷ്യവസ്തുക്കൾഉൾപ്പെട്ടെയുള്ള നിത്യോപയോഗസാധനങ്ങൾ മിതമായി നിരക്കിൽ ഉപഭോക്താക്കൾക്ക്ലഭ്യമാക്കുന്നതിനുട് പൊതുവിപണിവില നിയന്ത്രിക്കുന്നതിനുമായിസംസ്ഥാനത്തുടനീളംതിരഞ്ഞെടുക്കപ്പെട്ട സ്ഥലങ്ങളിൽ സപ്നൈകോ പ്രസ ഓണംമാർക്കറ്റുകളുംജില്ലാഫെയറുകളുംആരംഭിക്കുന്നത്

ജലപാർലമെന്റ് കാട്ടാക്കട നിയോജക മണ്ഡലത്തിലെ വറ്റാത്ത ഉറവയ്ക്കായി ജലസമൃദ്ധി പദ്ധതിയുടെ ഭാഗമായി സംഘടിപ്പിക്കുന്ന ജലപാർലമെന്റ് പുരോഗമിക്കുന്നു രാജ്യത്തെ പരമോന്നതമായ നിയമനിർമ്മാണ സഭയെ അനുസ്മരിപ്പിക്കും വിധം വിദ്യാർത്ഥികൾ വിവിധ സെഷനുകൾക്ക് നേതൃത്വം നൽകുന്നു വിദ്യാഭ്യാസമന്ത്രി സി രവീന്ദ്രനാഥ് ഐ ബി സതീഷ് എം

എ ഹരിതകേരളം മിഷൻ എക്സിക്യൂട്ടീവ് വൈസ് ചെയർ പേഴ്സൺ ഡോ

സീമ എന്നിവരുടെ സാന്നിദ്ധ്യത്തിലാണ് ജലപാർലമെന്റ് ആരംഭിച്ചത് വിവിധ വിഷയങ്ങളിൽ ശ്രദ്ധ ക്ഷണിക്കലും പ്രളയ അതിജീവനത്തെ ക്കുറിച്ച് പ്രത്യേക സെഷനും ഉൾപ്പെടുത്തിയിട്ടുണ്ട്

പട്ടികജാതിവികസന വകുപ്പിന്റെ ്നേതൃത്വത്തിൽതിരുവനന്തപുരം വെള്ളയമ്പലത്തെ അയ്യങ്കാളി പ്രതിമയിൽരാവിലെ പുഷ്പാർച്ചന സംഘടിപ്പിച്ചു

ബാലൻ കടകംപള്ളിസുരേന്ദ്രൻ ഡപ്യൂട്ടിസ്പീക്കർവി ശശിഎന്നിവർ പങ്കെടുത്തു ക്രിക്കറ്റ് ഇന്ത്യയുടെയും ദക്ഷിണാഫ്രിക്കയുടെയും എ ടീമുകൾ തമ്മിലുള്ള അഞ്ച് ഏകദിന ക്രിക്കറ്റ് പരമ്പരയിൽ ആദ്യത്തേത് നാളെകാര്യവട്ടം ഗ്രീൻ ഫീൽഡ് സ്റ്റേഡിയത്തിൽ നടക്കും മനീഷ് പാണ്ഡെയാണ് ഇന്ത്യയുടെഏകദിന ടീം നായകൻ

സെപ്തംബർ നാലിനും ആറിനും നടക്കുന്ന ഏകദിന മത്സരങ്ങളിൽ മലയാളിതാരം സഞ്ചു സാംസൺ കളിക്കും

പി രാഹുൽഗാന്ധിയുടെ രണ്ടാം ദിവസത്തെ സന്ദർശനം ആരംഭിച്ചു മാനന്തവാടി മാവിലി മീൻകൊല്ലി കോളനിയിൽ നിന്നും ആരംഭിച്ചത് കൂടുതൽ വിവരങ്ങളുമായി അരുൺകുമാർ എസ്

രാത്രി കൽപ്പറ്റ പി

ഡി ഗസ്റ്റ് ഹൌസിൽ താമസ്പിക്കുന്ന രാഹുൽ കോഴിക്കോട് ജില്ലയിലെ വിവിധ കേന്ദ്രങ്ങൾ സന്ദർശനം നടത്തിയ ശേഷമാണ് മടങ്ങുക വയനാടിന്റെ വികസ്നത്തിന് രാഷ്ട്രീയത്തിന് അതീതമായി എല്ലാവരും ഒന്നിച്ചു നിന്ന് പ്രവർത്തിക്കണമെന്നും വയനാട്ടിലെ ജനങ്ങളുമായി ജീവിതകാലം മുഴുവൻ നിലനിൽക്കുന്ന ബന്ധം സൃഷ്ടിക്കാനാണ് താൻ ആഗ്രഹിക്കുന്നതെന്നും ശ്രീ

ഇനി അഞ്ചു പേരെയാണ് കണ്ടെത്താനുള്ളത് അതേസമയം കാണാതായവരുടെ ആശ്രിതർക്കും അർഹമായ നഷ്ടപരിഹാരം നൽകുമെന്ന് വയനാട് സബ് കളക്ടർ അറിയിച്ചു ന്യൂസ് ഡെസ്ക് ആകാശവാണി

വെള്ളിയാഴ്ച രാവിലെ സ്വകാര്യ ടെലിവിഷൻ ചാനൽ സംഘടിപ്പിക്കുന്ന ന്യൂസ്കോൺക്ലേവ് പരിപാടിയിൽ അദ്ദേഹം മുഖ്യപ്രഭാഷണം നടത്തും തുടർന്ന് ഉച്ചയോടെ ശ്രീ ജാവദേക്കർ പൂനെയിലേക്ക് തിരിക്കും

സംസ്ഥാന കമ്മിറ്റി ഇന്ന് ഉച്ചതിരിഞ്ഞ് തിരുവനന്തപുരത്ത് ചേരും പാല ഉപതെരഞ്ഞെടുപ്പിലെ എൽ ഡി

സ്ഥാനാർത്ഥിയെ ഇന്ന് തീരുമാനിക്കും

സി

മൂന്നു തവണയായി പാലാ മണ്ഡലത്തിൽ എൽ

എഫ് സ്ഥാനാർത്ഥിയായി മൽസരിക്കുന്ന മാണി സി കാപ്പനെ എൻ സി പി ജില്ലാ കമ്മിറ്റി സംസ്ഥാന നേതൃത്വത്തിനു ശിപാർശ ചെയ്തിട്ടുണ്ട് അതേസമയം സ്ഥാനാർത്ഥി നിർണയത്തെച്ചൊല്ലി കേരളാ കോൺഗ്രസ് എമ്മിലെ പ്രതിസന്ധി രൂക്ഷമായി ജോസഫ് ജോസ് കെ മാണി പക്ഷങ്ങൾ കോട്ടയത്ത് വെവ്വേറെ യോഗം ചേർന്ന് അവകാശവാദങ്ങൾ ഉന്നയിച്ചു തങ്ങളുടെ പക്ഷത്തിന്റെ നേതൃയോഗം വിളിച്ച് സ്ഥാനാർത്ഥിയെ തീരുമാനിച്ച് യുഡിഎഫിനെ അറിയിക്കാൻ ജോസ് കെ മാണി പക്ഷം തീരുമാനിച്ചു കോൺ ഗ്രസ് നേതൃത്വം സമവായ ശ്രമങ്ങൾ തുടരുന്നു

ജെ പി സംസ്ഥാന അധ്യക്ഷൻ പി എസ് ശ്രീധരൻപിള്ള ഇന്ന് പാലായിലെത്തി പ്രാദേശിക നേതാക്കളും പ്രവർത്തകരുമായി ആശയവിനിമയം നടത്തും മറ്റന്നാൾ നടക്കുന്ന എൻ

എ യോഗം സ്ഥാനാർത്ഥിയെ തീരുമാനിക്കും വെളുത്തുള്ളിഇടുക്കി ഇടുക്കിയിലെ വട്ടവടകാന്തല്ലൂർ പ്രദേശങ്ങളിലെ പെരുമല കീഴാന്തൂർ എന്നിവിടങ്ങളിൽ കർഷകർക്ക് പ്രതീക്ഷ പകർന്ന് വെളുത്തുള്ളിയുടെ വിളവെടുപ്പ് ആരംഭിച്ചു കാന്തല്ലൂർ വെളുത്തുള്ളിക്ക് രുചിയും വീര്യവും കൂടുതലായതിനാൽ തമിഴ്നാട്ടിലെ വടുകപ്പെട്ടി മേട്ടുപ്പാളയംമാർക്ക്റ്റുകളിൽ ആവശ്യക്കാർ ഏറെയാണ്

പച്ചത്തുരുത്ത് പദ്ധതി ഭൂമിയിൽ പച്ചപ്പ് ഒരുക്കാനും പ്രാദേശിക ജൈവവൈവിധ്യ സംരക്ഷണം ലക്ഷ്യമിട്ടും ഹരിത കേരളം മിഷന്റെയും കോഴിക്കോട് കോർപ്പറേഷന്റെയും നേതൃത്വത്തിൽ ഗോവിന്ദപുരം വി കെ കൃഷ്ണമേനോൻ സ്മൃതിവനത്തിൽ പച്ചത്തുരുത്ത് പദ്ധതിക്ക് തുടക്കം കുറിച്ചു കോഴിക്കോട് കോർപ്പറേഷൻ വികസനകാര്യ സ്റ്റാൻഡിങ് ചെയർമാൻ പി സി രാജൻ തൈനടൽ നിർവഹിച്ചു കോംട്രസ്റ്റ് സമരം ബി ജെ പികോഴിക്കോട്ജില്ലാ കമ്മറ്റിയുടെ ആഭിമുഖ്യത്തിൽ കോംട്രസ്റ്റ് സമരപ്രഖ്യാപന കൺവൻഷൻ ഇന്ന് വൈകീട്ട്അഞ്ചിന് കോഴിക്കോട് ഇൻഡോർ സ്റ്റേഡിയത്തിൽ നടക്കും കോംട്രസ്റ്റ് ഭൂമിതിരിച്ചുപിടിക്കുക രാഷ്ട്രപതിഒപ്പ്വെച്ച ബിൽ ഉടനെ നടപ്പാക്കുകമുഴുവൻ തൊഴിലാളികൾക്കുംജോലി നല്കുക കോഴിക്കോടിന്റെ പൈതൃകം സംരക്ഷിക്കുകതുടങ്ങിയ ആവശ്യങ്ങളുന്നയിച്ചാണ് സമര പ്രഖ്യാപനം ദിശ തൃശൂർ തൃശൂർ ജില്ലയിൽ നടപ്പിലാക്കുന്ന വിവിധ കേന്ദ്രാവിഷ്കൃത പദ്ധതികളുടെ പ്രവർത്തനങ്ങൾ പരിശോധിക്കുന്നതിനും വിലയിരുത്തുന്നതിനുമായി കേന്ദ്രഗവൺമെന്റ് രൂപീകരിച്ച ദിശ കമ്മറ്റിയുടെ ജില്ലാതല ചെയർമാനായി ടി

പ്രതാപൻ എം പിയെ കേന്ദ്ര ഗ്രാമവികസന മന്ത്രാലയം നാമനിർദ്ദേശം ചെയ്തു എംപിമാരായ ബെന്നി ബഹനാൻ രമൃ ഹരിദാസ്എന്നിവരാണ് കോചെയർമാൻമാർ